ഉഭയകക്ഷി അന്താരാഷ്ട്ര വിഷയങ്ങളും യോഗം ചർച്ച ചെയ്യും

പരസ്പര താൽപര്യമുള്ള ഉഭയകക്ഷി അന്താരാഷ്ട്ര വിഷയങ്ങളും യോഗം ചർച്ച ചെയ്യും അതിർത്തി നിർണയം അതിർത്തി പരിപാലനം എന്നിവ ഉൾപ്പെടെ നിരവധി ഉഭയകക്ഷി വിഷയങ്ങളും രാജ്യാന്തര വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്ന് ചൈനീസ് വിദേശ മന്ത്രാലയ വക്താവ് ജംഗ്ഷുവാങ് ബീജിംഗിൽ പറഞ്ഞു ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് നേതൃത്വം നൽകുന്നത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങും തമ്മിൽ ഒക്ടോബറിൽ മാമല്ലപുരത്ത് നടത്തിയ അനൌപചാരിക ഉച്ചകോടിക്ക് ശേഷമുള്ള ആദ്യ പ്രതിനിധിതല ചർച്ചയാണിത്

എല്ലാ മെട്രോ സ്റ്റേഷനുകളിലെയും എൻട്രി എക്സിറ്റ് ഗേറ്റുകൾ തുറന്നിട്ടുണ്ട്

അക്രമങ്ങൾ ഉണ്ടാക്കിയതിനും പൊലീസിന്റെ കൃത്യനിർവ്വഹണം തടസപ്പെടുത്തിയതിനുമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ദരിയാഗഞ്ച് മേഖലയിൽ പ്രതിഷേധക്കാർ ഇന്നലെ ഒരു കാർ കത്തിച്ചിരുന്നു കല്ലേറിൽ പൊലീസുകാർക്കും പരിക്കേറ്റിരുന്നു

സിസിടിവി കൃാമറകൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചും കനത്ത നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അക്രമങ്ങളിൽ ഉൾപ്പെട്ടവർക്കെതിരെ പൊലീസ് കേസെടുത്തിട്ടുണ്ട് ഇന്ന് ഉത്തർപ്രദേശിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും സർവ്വകലാശാലകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്

ഇറാൻ വിദേശകാര്യ മന്ത്രി മുഹമ്മദ് ജവാദ് സാരിഫുമായി അദ്ദേഹം ചർച്ചകൾ നടത്തും ഇറാനിയൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുമായും ശ്രീ

ഛാബഹാർ തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനത്തിൽ ചർച്ചാ വിഷയമാകും

ഇത് ലക്ഷ്യമിട്ടുള്ള പദ്ധതിക്ക് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം അന്തിമരൂപം നൽകി യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം ഉറപ്പാക്കാനായി ഒട്ടേറെ നടപടികളാണ് മന്ത്രാലയം സ്വീകരിച്ചുവരുന്നത് സ്കിൽഡ് ഇന്ത്യ സാക്ഷാത്കരിക്കാനായി രാജ്യമെമ്പാടും ഉന്നത നിലവാരം പുലർത്തുന്ന നൈപുണ്യ പരിശീലനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം

വിശദാംശങ്ങളുമായി മല്ലിക

റെയിൽവെ യാത്രക്കാർക്ക് ലോകോത്തര നില്പ്രാർത്തിലുള്ള യാത്രാ സൌകര്യങ്ങളും സുരക്ഷയും ലഭ്യമാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുമെന്ന് കേന്ദ്ര മന്ത്രി വ്യക്തമാക്കി വിപണിയിളെ പ്രണ്മൊഴുക്ക് വർദ്ധിപ്പിക്കാൻ ബാങ്കുകൾക്ക് എല്ലാവിധ സഹായങ്ങളും ്യാൽകുമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രാലയം ഉറപ്പു നൽകിയതായും ശ്രീ

രാജ്യത്തെ വാണിജ്യ വ്യവസായ റിയൽ എസ്റ്റേറ്റ് മേഖലയെ ശക്തമായി മുന്നോട്ടു കൊണ്ടുപോകാൻ വിവിധ മന്ത്രാലയങ്ങളും ബാങ്കുകളും വ്യവസായ ലോകവും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി

ഏറ്റവും മികച്ച ചിത്രത്തിനുളള പുരസ്കാരത്തിന് ഗുജറാത്തി ചിത്രം ഹെല്ലാരോ യാണ് അർഹമായത് അന്ധാധുൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആയുഷ്മാൻ ഖുറാനയും ഉറി എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെ വിക്കി കൌശലും മികച്ച നടനുളള പുരസ്കാരം പങ്കു വയ്ക്കും തെലുങ്കു ചിത്രം മഹാനദിയിലൂടെയാണ് മലയാളി നടി കീർത്തി സുരേഷ് മികച്ച നടിക്കുളള പുരസ്കാരം നേടിയത് ഉറിയുടെ സംവിധായകൻ ആദിത്യ ധാറിന് മികച്ച സംവിധായകനുളള പുരസ്കാരം നല്കും

സി പി കേരള അധ്യക്ഷൻ തോമസ് ചാണ്ടി എം

ആലപ്പുഴ ടൌൺ ഹാളിൽ തിങ്കളാഴ്ച പൊതുദർശനത്തിന്റെ വയ്ക്കും

ഇന്നലെ ളക്ട്ച്ചീയിലെ വസതിയിലായിരുന്നു അന്ത്യം

സ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന കുട്ടികളെ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി

വ്യോമസേനയുടെ മൂല്യവും ധർമ്മവും സംരക്ഷിക്കണമെന്നും എയർ ചീഫ് മാർഷൽ കേഡറ്റുകളോട് ആഹ്വാനം ചെയ്തു

മേഖലയിലെ സമ്പദ്ഘടന ശക്തിപ്പെടുത്താനും തൊഴിൽ സാധൃത വർധിപ്പിക്കാനും ഇതു വഴിതെളിച്ചിട്ടു്

ജമ്മുകാശ്മീരിലെ ലഡാക്കിൽ ഇന്നലെയുണ്ടായ കനത്ത മഞ്ഞ് വീഴ്ച താപനില വീണ്ടും കുറച്ചു അടുത്ത രണ്ട് ദിവസത്തേക്ക് ജമ്മുവിലും കൾമീരിലും തൽസ്ഥിതി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

ദേശീയ തലസ്ഥാനത്ത് താപനില ഡിഗ്രി സെൽഷ്യസിലെത്തി

ക്രിസ്മസ് അവധിക്കു ശേഷം അടുത്തമാസം ചേരുന്ന പാർലമെന്റ് കരാർ വിശദമായി പരിശോധിച്ച് അന്തിമ അനുമതി നല്കും

രാജൃം ബ്രക്സിറ്റിലേക്ക് ഒരു ചുവട് കൂടി അടുത്തായി ബ്രട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറഞ്ഞു

സിറിയൻ ഭരണകൂടത്തിന്റെ അനുമതിയില്ലാതെയാണ് യു എൻ ചെക്ക് പോയിന്റുകൾ വഴി നിലവിൽ സിറിയയ്ക്ക് സഹായമെത്തിക്കുന്നതെന്ന് അവർ ആരോപിച്ചു